എമിസാറ്റ് വിജയകരമായി വിക്ഷേപിച്ചു ഐ

ഒ യ്ക്ക് ചരിത്ര നേട്ടം

രാഹുൽഗാന്ധിയ്ക്കെതിരെ തുഷ്യാർ വെള്ളാപ്പള്ളി എൻ

എ സ്ഥാനാർത്ഥിയാക്ടൂർമെന്ന് റിപ്പോർട്ട്

രജിസ്ട്രേഷന് സംസ്ഥാനത്ത് തുടക്കമായി

കഴിയുന്ന ഏഴ് വയസ്കാരനെ കോഴഞ്ചേരി ആശുപത്രിയിൽ എത്തി മുഖ്യമന്ത്രി സന്ദർശിച്ചു

കാട്ടുതീ നാലാം ദിവസവും അണയ്ക്കാനായില്ല വനപാലകർ തീവ്രപരിശ്രമത്തിൽ

എസ് ആർ

വിക്ഷേപണം വിജയകരമാണെന്ന് ഐ എസ് ആർ ഒ അറിയിച്ചു മൂന്ന് മണിക്കൂർ ദൈർഘ്യം ഉള്ളതാണ് വിക്ഷേപണം

രാജ്യം പൂർണ്ണമായി എമിസാറ്റിന്റെ നിരീക്ഷണ പരിധിയിൽ വരും മൂന്ന് വ്യത്യസ്ത ഭ്രമണ പഥങ്ങളിൽ എത്തുന്നുവെന്നതും ഇന്നത്തെ വിക്ഷേപണത്തിന്റെ പ്രത്യേകതയാണ് അമേരിക്കയുടെ ലിത്യോനിയയുടെ രണ്ടും സ്വിറ്റ്സർലണ്ട് സ്പെയിൻ എന്നീരാജ്യങ്ങളുടെ ഓരോ ഉപഗ്രഹങ്ങളും വീതമാണ് ഇന്ത്യ വിക്ഷേപിച്ചത് വയനാട് പ്രചാരണം കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി വയനാട് ദേശീയ തലിത്തിൽ ശ്രദ്ധാകേന്ദ്രമാവുകയാണ് ബി ഡി ജെ എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി വയനാട്ടിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയാകുമെന്നാണ് റിപ്പോർട്ട്

സി

വടകരയിലെ എൻഡിഎ സ്ഥാനാർത്ഥി അഡ്വ

വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർഥി പി ജയരാജൻ കൊയിലാണ്ടി നിയമസഭാ മണ്ഡലത്തിൽ രണ്ടാംഘട്ട പര്യടനം നടത്തുകയാണ്

രമയ്ക്കെതിരെ കേസെടുക്കാൻ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ്

സ്ഥാനാർത്ഥി പി ജയരാജനെതിരെ നടത്തിയ പരാമർശ്ം ചൂണ്ടിക്കാട്ടി നൽകിയ പരാതിയിലാണ് നടപടി സിപ്പിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റാണ് പ്രാതി നൽകിയത്

ജെ പി സ്ഥാനാർത്ഥി കെ

സാബു യു

എഫ് സ്ഥാനാർത്ഥി എൻ

പ്രേമചന്ദ്രൻ എന്നിവർ കൊല്ലം കളക്ട്രേറ്റിൽ ജില്ലാകളക്ടർ എസ് കാർത്തികേയന് മുമ്പാകെ പത്രിക സമർപ്പിച്ചു

എഫ് സ്ഥാനാർഥി കെ

ബാലഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി സിപിഐ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഇന്ന് എം കൊല്ലത്തെത്തും

പ്രതാപൻ തൃശൂരിലും കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കരയിലുമാണ് പത്രിക സമർപ്പിച്ചത്

ഡി

ഡി എഫ് സ്ഥാനാർത്ഥി കെ

രമയും തിങ്കളാഴ്ച നാമനിർദ്ദേശപത്രികകൾ സമർപ്പിച്ചു

ജെ

ഡി എഫ് സ്ഥാനാർഥി എം കെ രാഘവൻ ഇന്ന് കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പര്യടനം നടത്തും രാവിലെ ഒമ്പതിന് മാളിക്കടവിൽ നിന്ന് ആരംഭിക്കുന്ന പര്യടന പരിപാടി കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു

രാമചന്ദ്രൻപിള്ള രാജ്യമാകെ വളർന്നുവരുന്ന മതേതര ജനാധിപത്യ ബദലിനെ തകർക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നതെന്ന് സി

ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻപിള്ള നിലവിൽ കോൺഗ്രസ് ജയിച്ച സംസ്ഥാനങ്ങളിൽ മതേതര കക്ഷികളുമായി സഹകരിക്കാത്ത കോൺഗ്രസ് പശ്ചിമ ബംഗാളിൽ ഇടതുപക്ഷത്തിനെതിരെ മൽസരിക്കാനാണ് ശ്രമം നടത്തിയത് ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വയനാട്ടിലെ രാഹുൽഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വമെന്നും എസ് രാമചന്ദ്രൻ പിള്ള കാസർകോട്ട് പറഞ്ഞു

കേന്ദ്ര ഗവൺമെന്റിന്റെ ആയുഷ്മാൻ ഭാരത് സംസ്ഥാനത്തെ വിവിധ ആരോഗ്യ പരിരക്ഷാ പദ്ധതികൾ എന്നിവ സംയോജിപ്പിച്ചുള്ളതാണ് പദ്ധതി

പുതുക്കിയ ക്യാരൂണ്യ ഇൻഷുറൻസ് കാർഡ് കിട്ടുന്നതുവരെ നിലവിലുള്ള് ചികിൽസാകാർഡ് ഉപയോഗിക്കാമെന്ന് ആര്യോഗ്യ ്വകുപ്പ് അറിയിച്ചു എന്നാൽ തെരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കുന്നതിനാൽ കമ്മീഷന്റെ അനുമതിയോടെ മാത്ര്മേ ്ഗുണഭോക്താക്കൾക്ക് പുതിയ കാർഡ് അനുവദിക്കാനാവൂ

വിദഗ്ദ്ധ ഡോക്ടർമാരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു വളരെ നിർഭാഗൃകരമായ അവസ്ഥയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കുട്ടിവെന്റിലേറ്ററിൽ തുടരുകയാണ് വിദഗ്ദ്ധ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് വെന്റിലേറ്റർ തുടരുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

കുട്ടി മരുന്നുകളോട് പ്രതികരിക്കുന്നില്ല

കാട്ടു തീ നിയന്ത്രിക്കാനുള്ള തീവ്ര പ്രയത്നത്തിലാണെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വിശദാംശങ്ങളുമായി ആകാശവാര് ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ

കെഎസ്ആർടിസി ബസ് സ്റ്റാൻറിന് സമീപത്തെ ശങ്ക്ടുണ്ണി നായർ റോഡിൽ രാവിലെ ഒമ്പത് മണിയോടെയാണ് മൃതദ്ദേഹം കണ്ടെത്തിയത്

പൊലീസ് അന്വേഷണം ആരംഭിച്ചു

ഒ ഇടുക്കി വട്ടവട കൂടുംബാരോഗ്യ കേന്ദ്രം ഐ എസ്

ക്ഷേത്രത്തിൽ പന്ത്രണ്ടു ദിവസം ഭജനമിരുന്നതിനു ശേഷമാണ് ഇന്നലെ രാത്രി ചുമതലയേറ്റത്

ത്രീപിടുത്തത്തിന്റെ കാരണം വൃക്തമല്ല സൂര്യാഘാതം സൂര്യാഘാത മുന്നറിയിപ്പ് ഉള്ളതിനാൽ നാളെമലപ്പുറം ജില്ലയിൽ കേന്ദ്രീയ വിദ്യാലയം ഉൾപ്പെടെ എല്ലാ സ്കൂളുകൾക്കും അവധി ആയിരിക്കുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു

പോസ്റ്ററുകൾ ബാനറുകൾ മറ്റു പ്രചാരണ പരസ്യങ്ങൾ എന്നിവയാണ് നീക്കം ചെയ്തത്